ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാംഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമായി

ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം ആരംഭിച്ചു ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു

വിവിധ രാഷ്ട്രീയ പാർട്ടികൾ മുൻനിര നേതാക്ക്സ്മാർുടെ നേതൃത്വത്തിൽ റാലികൾ സംഘടിപ്പിച്ചു വരികയാണ്ട്

ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ നടന്ന പ്രചാരണത്തിൽ പങ്കെടുത്തു തന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ രാജ്യമെമ്പാടും ദേശീയ പൌരത്വ രജിസ്റ്റർ കൊണ്ടുവരുമെന്നും ഇതിലൂടെ അനധികൃത നുഴഞ്ഞുകയറ്റം തടയാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു പൌരത്വഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കി ഇന്ത്യയിൽ അധിവസിക്കുന്ന ന്യൂനപക്ഷ അഭയാർത്ഥികൾക്ക് പൌരത്വം അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നടപ്പിലാക്കുന്നതിൽ എൻ ഡി എ ഗവണ്മെന്റ് പരാജയപ്പെട്ടുവെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി റാണിബന്ദിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു

നോട്ടു നിരോധനം മൂലം അഞ്ചു ലക്ഷം പ്പേര്ക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുവെന്നും ഗവണ്മന്റ് മേഖലയിൽ നികത്താതെയുണ്ടെന്നും ശ്രീമിയി പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു

ന്യൂസ് ഡസ്ക് ആകാശവാണി

പശ്ചിമബംഗാളിലെ പുരൂലിയയിൽ തെരഞ്ഞെടുപ്പു സമ്മേളനം അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

രാഹുൽ ആരോപിച്ചു

പാർട്ടി നേതാക്കളായ മുഖ്തർ അബ്ബാസ് നഖ്വി ഭുപ്പേന്ദർ യാദവ് എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇതിനായി കമ്മിഷനെ ് നേരിട്ടു കണ്ടത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽഗാന്ധി നടത്തിയ പ്രസംഗങ്ങളിൽ ജനാധിപത്യ വിരുദ്ധവും വസ്തുതാവിരുദ്ധവുമായ പ്രസ്താവനകൾ നടത്തിയതു വഴി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയിട്ടുള്ളതായി ശ്രീ യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞു

നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഭേദഗതി വരുത്താൻ തയ്യാറല്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നേതൃത്വം നല്കുന്ന ബഞ്ച് അറിയിച്ചു വോട്ടിംഗ് മെഷീനുകളും വിവിപാറ്റ് സ്തിപ്പുകളും താരതമ്യം ചെയ്യുന്നത് ഒരു നിയമസഭ സീറ്റിലെ അഞ്ച് പോളിംഗ് ബൂത്തുകൾ തെരഞ്ഞെടുത്ത് നടത്തണം എന്നാണ് ഏപ്രിൽ എട്ടാം തീയതി പരമോന്നത കോടതി ഇലക്ഷൻ കമ്മീഷന് നിർദ്ദേശം നല്കിയത് ഹർജിക്കാർക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ എ

നിലവിലുള്ള ഉത്തരവ് അനുസരിച്ചു

സിങ്വി പരമോന്നത കോടതിയെ ബോധിപ്പിച്ചു

ആം ആദ്മി പാർട്ടി ഈസ്റ്റ് ഡൽഹി സ്ഥാനാർത്ഥി അതീഷിയെ പിന്തുണച്ച് ജാതി പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചതിന്റെ പേരിലാണ് നോട്ടീസ് നല്കിയത് നാളെ ന് വൈകുന്നേരത്തോടെ മറുപടി നൽകാനാണ് ശ്രീ സിസോദിയയോട് ആവശൃപ്പെട്ടിരിക്കുന്നത്

നാവികസേനയുടെ നാല് ഹെലികോപ്ടറുകളും ഇന്ത്യൻ തീരദേശ സേനയും ഭക്ഷണമെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിനു സജീവമായുണ്ട്

പെട്രോൾ ഡീസ്ത്ൽ എന്നിവയ്ക്ക് സംസ്ഥാനത്ത് ക്ഷാമമില്ലെന്നും മിക്കുകൂ പ്പെട്രോൾ പമ്പുകളും പ്രവർത്തന ക്ഷമമാണെന്നും പെട്ട്രോളീയം മന്ത്രാലയം അറിയിച്ചു

പ്രശസ്ത ഇന്ത്യൻ സംവിധായകൻ ശ്യാംബനഗലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് വാർത്താപ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറി അമിത് ഘാരെയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രതിനിധി സംഘവുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി

ഏഴ് വർഷത്തേക്ക് ജയിലിലടച്ച ഇവരെ പ്രസിഡന്റിന്റെ മാപ്പിലാണ് സ്വാതന്ത്രൃം നല്കിയത്

എന്നാൽ എത്രയാണ് വർദ്ധിപ്പിക്കുകയെന്നോ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് വർദ്ധനയെന്നോ വെളിപ്പെടുത്തിയിട്ടില്ല

സുരക്ഷാസേനയിൽ ആർക്കും അപകടമില്ല

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് അക്ഷയത്രിതീയയുടെയും റംസാൻ വ്രതാരംഭത്തിന്റെയും വേളയിൽ ആശംസകൾ നേർന്നു